ത വ്രതവിശുദ്ധിയുടെ നിറവിൽ ഇന്ന് ചെറിയ പെരുന്നാൾ ത തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഗവൺമെന്റ് സംവിധാനങ്ങളോട് പൂർണ സജ്ജരാകാൻ മുഖ്യന്ത്രിയുടെ നിർദ്ദേശം വാർത്തകൾ വിശദമായി രാജ്യത്തെ കോവിഡ് വ്യാപനം നേരിടുന്നതിന് സംസ്ഥാനങ്ങൾ സമയബന്ധിതമായി വെന്റിലേറ്ററുകൾ പ്രവർത്തനസജ്ജമാക്കാനും സാങ്കേതിക പരിശീലന പ്രശ്നങ്ങൾ നിർമാതാക്കളുടെ സഹായത്തോടെ പരിഹരിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു മെഡിക്കൽ ഓക്സിജന്റെയും മരുന്നുകളുടെയും ലഭ്യതയും വിതരണവും അവലോകനം ചെയ്യാൻ വിളിച്ച ഉന്നതതലയോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി കോവിഡാനന്തര രോഗമായി വ്യാപിക്കുന്ന മ്യൂകോർ മൈക്കോസിസിന് അടക്കം മരുന്നുകളുടെ ലഭ്യത സജീവമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രിമാർ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു രുഭ കോവിഡ് മഹാമാരി നേരിടാൻ നിരവധി നടപടികൾ മുന്നോട്ടുവെച്ച് പന്ത്രണ്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു ലഭ്യമായ എല്ലായിടത്തുനിന്നും വാക്സിൻ സംഭരിച്ച് എല്ലാവർക്കും സൌജന്യമായി നൽകണമെന്നും സാർവത്രിക വാക്സിനേഷൻ പ്രചാരണം നടത്തണമെന്നും അവർ കത്തിൽ ആവശ്യപ്പെട്ടു ആഭ്യന്തര വാക്സിൻ ഉൽപാദനം വർധിപ്പിക്കണമെന്നും നേതാക്കൾ നിർദേശിച്ചു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി എൻ സി

നേതാവ് ശരത് പവാർ സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ടി എം സി നേതാവ് മമതാ ബാനർജി തുടങ്ങിയവർ കത്തെഴുതിയവരിൽ ഉൾപ്പെടുന്നു തൊഴിൽ രഹിതർക്ക് പ്രതിമാസം ആറായിരം രൂപ നൽകണമെന്നും കത്തിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്

മറ്റ് ജില്ലകളിൽ ഇതിൽതാഴെയാണ് ഇന്നലെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം

ദ്ദേ അവശ്യഘട്ടങ്ങളിലെ യാത്രയ്ക്ക് കേരളപോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ അപ്പിക്കേഷനായ പോൽ ആപ്പ് വഴിയും അപേക്ഷിക്കാം ആപ് സ്റ്റോറിൽനിന്നോ പ്ലേ സ്റ്റോറിൽനിന്നോ പോൽ ആപ് ഡൌൺലോഡ് ചെയ്ത് പോൽ പാസ്സ് എന്ന ഓപ്ഷനിൽ വിവരങ്ങൾനൽകി പാസ്സിനായി രജിസ്റ്റർ ചെയ്യാം പാസ്സ് അനുവദിച്ചാൽ രജിസ്റ്റർചെയ്ത മൊബൈൽ നമ്പറിൽ ലിങ്ക് ലഭിക്കും ക്യു ആർ കോഡോടുകൂടിയ പാസ്സ് ഇതിൽ ലഭിക്കും ദിവസവേതനക്കാർ വീട്ടുജോലിക്കാർ കൂലിപ്പണിക്കാർ തുടങ്ങിയവർക്ക് ഒരാഴ്ച സാധ്യതയോടെ ഇത്തരത്തിൽ പാസ്സ് ലഭിക്കും രെട യാത്രയ്ക്ക് പോലീസിന്റെ ഓൺലൈൻ ഇ പാസിന് അപേക്ഷിച്ചവരുടെ എണ്ണം നാലരലക്ഷത്തോട് അടുക്കുന്നു

ശേഷിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ചുവരികയാണ്

ദേഴ മെഡിക്കൽ ഉപകരണങ്ങൾക്ക് അമിത വില ഈടാക്കിയ സ്ഥാപനങ്ങൾക്കെതിരേ കൊല്ലം ജില്ലയിൽ നടപടി ആരംഭിച്ചു ചില സ്വകാര്യ ലാബുകൾ ആർ

ദേഴ കോട്ടയം ജില്ലയിൽ ഇന്ന് കോവിഷീൽഡ് വാക്സിനേഷൻ ഉണ്ടാവില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു കോട്ടയം എം ഡി സെമിനാരി സ്കൂളിലും പാല എം

എച്ച്

ദേദ ഇടുക്കി ജില്ലയിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ കോവിഡ് ബെഡ്ഡുകൾക്ക് ക്ഷാമമില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു സ്വകാര്യ ആശുപത്രികളിലും ബെഡ്ഡുകളും വെന്റിലേറ്ററുകളും ബാക്കിയുണ്ട് ഗവൺമെന്റ് ആശുപത്രികളിൽ ഐ

ബെഡ്ഡുകളുടെ കുറവ് പരിഹരിക്കാൻ നടപടിയെടുത്തുവരികയാണെന്നും ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു ദ്ദേ കോവിഡ് മഹാമാരി കണക്കിലെടുത്ത് ഇ

കോർപ്പറേഷൻ തൊഴിൽദായകർക്ക് ഏപ്രിലിലെ വിഹിതം അടയ്ക്കുന്ന തീയതി നീട്ടിനൽകി

ദേദ വൈദ്യുതി വാഹനങ്ങൾക്കായി നിർമിക്കുന്ന അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ ബാറ്ററികൾക്ക് ഉൽപാദനബന്ധ ആനുകൂല്യം നൽകാൻ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു

നിലവിൽ ഇത്തരം ബാറ്ററികൾ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ് പുതിയ ആനുകൂല്യ പദ്ധതി സ്വയംപര്യാപ്തത നേടിയെടുക്കാൻ രാജ്യത്തെ സജ്ജമാക്കുമെന്ന് ജാവ്ദേക്കർ വിശ്വാസം പ്രകടിപ്പിച്ചു രുഭ വ്രത വിശുദ്ധിയുടെ നിറവിൽ ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്വർ ആഘോഷിക്കുന്നു മുപ്പത് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കിയാണ് ഇത്തവണ ഇദുൽ ഫിത്വർ കോവിഡ് പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിച്ച് വീടുകളിലായിരിക്കും ഇന്നത്തെ പെരുന്നാൾ നമസ്കാരം അന്ന പാനീയങ്ങൾ ഉപേക്ഷിച്ചും പ്രാർത്ഥനകളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ഒരുമാസക്കാലം ആർജിച്ചെടുത്ത പുതിയ വെളിച്ചം വിശ്വാസികളുടെ തുടർ ജീവിതത്തിലും അണയാതെ സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയേണ്ടതുണ്ടെന്ന് ഖാസിമാരും മതനേതാക്കളും ഈദ് ആശംസകളിൽ ആഹ്വാനം ചെയ്തു കേരളത്തിന് പുറമേ യു എ ഇയിലും സൌദി അറേബ്യയിലും ഇന്നാണ് ചെറിയ പെരുന്നാൾ ഗവർണർ ആരിഫ് മുഹമ്മദ്ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെ പ്രമുഖർ ഈദ് ആശംസകൾ നേർന്നു കോവിഡിന്റെ സാഹചര്യത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾ കുടുംബത്തിൽതന്നെയാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർഥിച്ചു രുര പരസ്പര സ്നേഹവും ബഹുമാനവുമാണ് ഈദിന്റെ സന്ദേശമെന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു മഹാമാരിക്കാലഘട്ടത്തിലും സ്നേഹം കാത്തുസൂക്ഷിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം ഈദ് സന്ദേശത്തിൽ പറഞ്ഞു ദേദ ഇസ്രായേലിൽ ഷെല്ലാക്രമണത്തിൽമരിച്ച ഇടുക്കി കീരിത്തോട് സ്വദേശിനി സൌമ്യ സന്തോഷിന്റെ മൃതദേഹം എത്രയുംവേഗം നാട്ടിലെത്തിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നടപടിയെടുത്തുവരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇസ്രായേലിലെ ഇന്ത്യൻ സ്ഥാനപതിയുമായി നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി ബന്ധപ്പെട്ടു സൌമ്യയുടെ അകാലവിയോഗത്തിൽ കുടുംബത്തിന് ആശ്വാസമേകാൻ പര്യാപ്തമായ നഷ്ടപരിഹാരം നേടിയെടുക്കാൻ നടപടിക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു രുഭ തെക്ക് കിഴക്കൻ അറബിക്കടലിൽ നാളെയോടെ ന്യൂനമർദ്ദം ഉണ്ടായേക്കുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഗവൺമെന്റ് സംവിധാനങ്ങളോട് പൂർണ സജ്ജരാകാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ന്യൂനർദ്ദം ചുഴലിക്കാറ്റായി മാറിയാൽ നാളെയും മറ്റന്നാളും സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്

കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കിവരെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്

ദുരന്തനിവാരണ അതോറിറ്റിയുടെ പുതിയ അറിയിപ്പ് കിട്ടുന്നതുവരെ ആരും കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം മീൻപിടുത്തത്തിന്പോയവർ ഏറ്റവുംവേഗം തൊട്ടടുത്ത സുരക്ഷിത തീരത്ത് എത്തിച്ചേരണം താഴ്ന്ന പ്രദേശങ്ങളിലും ചില നഗരമേഖലകളിലും വെള്ളക്കെട്ടിനു സാധ്യതയുണ്ട്

ദേദ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി കെ എസ് ഇ ബി ആരോഗ്യം ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റികൾ തുടങ്ങിയവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി കോവിഡ് ചികിത്സ ലഭ്യമാക്കുന്ന ആശുപത്രികളിൽ വൈദ്യുതി തടസ്സം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം

ദേഴ പുതിയ സെർവർ സ്ഥാപിച്ച് ട്രഷറി ഡാറ്റ മാറ്റുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാൽ നാളെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകില്ലെന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു